ഏജൻസി അന്വേഷിക്കും ലോക കേരള സഭയുടെ ആദ്യ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് ഇന്ന് ദുബായിൽ തുടക്കം

തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് ആൺകുട്ടികളുടെ ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റ് ഗുജറാ ത്തിലെ നദിയാദിൽ ഇന്ന് തുടങ്ങും

കശ്മീരിൽ സി ആർ പി എഫ് സംഘത്തിന്റെ വാഹന വ്യൂഹത്തിനുനേരെ ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധം സംഭവ ത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് എന്നിവർ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി സൈന്യത്തിന് നേരെ നടന്ന ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായും നമ്മുടെ ധീരന്മാരായ സൈനികരുടെ രക്തസാ ക്ഷിത്വം വെറുതെയാവില്ലെന്നും അവരുടെ കുടുംബത്തിനൊപ്പം രാജ്യം തോളോടു തോൾ ചേർന്നു നില്ക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വും ഭീകരരുടെ അഭയകേന്ദ്രവും പാകിസ്ഥാനാണെന്ന് പ്രധാ നമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു വാക്കുകൾക്കതീതമായ വേദനയാണ് ആക്രമണത്തിലൂടെ ഉണ്ടായതെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറ ഞ്ഞു ഭീകരാക്രമണം വേദനാജനകമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിയും ന്യൂഡൽഹിയിൽ അറിയിച്ചു

ആക്ര മണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനുമുന്നിൽ കൊണ്ടുവരണമെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെ കുടുംബ ത്തോടും ഇന്ത്യാ ഗവൺമെന്റിനോടും അനുശോചനം അറിയിക്കുന്നതായി അദ്ദേ ഹത്തിന്റെ ഔദ്യോഗിക വക്താവ് സ്റ്റീഫൻ ഡുജാറിക് ഐക്യരാഷ്ട്രസഭാ ആസ്ഥാ നത്ത് പറഞ്ഞു ഭീകരാക്രണത്തെ അമേരിക്കയും ശ്രീലങ്കയും നേപ്പാളും അപലപി ച്ചു ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യയിലെ യു എസ് സ്ഥാനപതി കാര്യാലയം ഭീകരപ്രവർത്തനങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യക്കൊപ്പമുണ്ടെന്ന് അറി യിച്ചു

നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ്മ ഒലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ അനു ശോചനം അറിയിച്ചു

ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ബസുകൾക്കു നേരെ സ്ഫോടകവസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചുകയറ്റിയായിരുന്നു ആക്രമണം ഇന്നലെ വൈകിട്ട് നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ കേന്ദ്ര മായി പ്രവർത്തിക്കുന്ന ഭീകരസംഘടനയായ ജയ്ഷെ ഇ മുഹമ്മദ് ഏറ്റെടുത്തു കശ്മീർ താഴ്വരയിൽ ജോലിയിൽ പ്രവേശിക്കാൻപോയ ജവാന്മാരാണ് ആക്രമ ണത്തിനിരയായത്

ജയ്ഷെ മുഹമ്മദ് ഭീകരനായ ആദിൽ അഹമ്മദ് ദർ ആണ് സ്ഫോടകവസ്തുക്കൾ നിറച്ച കാർ ജവാന്മാരുടെ ബസിലേക്ക് ഇടിച്ചുകയറ്റിയത്

ഇയാളുടെ വീഡിയോ ദൃശൃം പൊലീസിന് ലഭിച്ചിട്ടുണ്ട്

ഭീകരാക്രമണത്തിൽ മരിച്ചവരിൽ മലയാളി സൈനികരും ഉൾപ്പെട്ടതായി റിപ്പോർട്ട്

കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കും

ലോക കേരള സഭയുടെ ആദ്യ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് ഇന്ന് ദുബായിൽ തുടക്കമാകും രണ്ടു ദിവസങ്ങളിലായി എത്തിസലാത്ത് അക്കാദമിയിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും പ്രവാസി നിക്ഷേപം സ്വരൂപിക്കാൻ പ്രത്യേക കമ്പനി പ്രവാസി ഗവേഷണത്തിന് അന്താരാഷ്ട്ര പഠനകേന്ദ്രം പ്രവാസികളുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ കമ്പനി പുനരധിവാസ പദ്ധതികൾ എന്നിവ ലോക കേരളസഭയിൽ പ്രഖ്യാപിക്കും

ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ന്യൂഡൽഹിയിൽ നിന്നും കാൺപൂർ വഴി വാരാണസിയിലേക്കാണ് ട്രെയിൻ സർവീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാ നത്തിൽ സഖ്യമുണ്ടാക്കി പ്രവർത്തിക്കാൻ ആറു പ്രതിപക്ഷ പാർട്ടികൾ തീരുമാ നിച്ചു കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ടി ഡി പി എൻ സി പി ആംആദ്മി പാർട്ടി നാഷണൽ കോൺഫറൻസ് സംഘടനകളുടെ നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്

ഭാസ്കരൻ അറിയിച്ചു

നില്ക്കുന്ന കോൺഗ്രസിന്റേത് അപകടകരമായ കളിയാണെന്ന് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി തിരുവനന്തപുരത്ത് പറഞ്ഞു എൽ ഡി എഫ് കേരള സംരക്ഷണയാത്രയുടെ തെക്കൻ മേഖലാജാഥ ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു അദ്ദേഹം ശബരിമല ലിംഗസമത്വത്തിന്റെ വിധിയാണ്

എന്നാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ വിശ്വാസ്യത തകർക്കാൻ ശബ്രിമല വിഷയം അവർ ആയുധമാ ക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി

ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തനംതിട്ടയിൽ ബി ജെ പി ബൂത്ത്തല പ്രവർത്തകരുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

റാത്തിലെ നദിയാദിൽ ഇന്ന് തുടക്കമാകും മരീഡ ഭാഗൽ സ്പോർട്സ് കോംപ്ല ക്സിൽ വേഗക്കാരനെ നിശ്ചയിക്കുന്ന നൂറു മീറ്റർ ഓട്ടമാണ് ആദ്യമത്സരം

അവസാന സ്ഥാനക്കാരായ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും ഇന്ന് ഏറ്റുമുട്ടും

സ്ഥാപനങ്ങളിൽ ജോലി ഉറപ്പാക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ അറിയിച്ചു പാലക്കാട് പറളി ഹയർ സെക്കന്ററി സ്കൂൾ ചിറ്റൂർ ഗവണ്മെന്റ് കോളേജ് എന്നിവിടങ്ങളിലെ സ്പോർട്സ് കോംപ്ലസ്കളുടെ നിർമാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

് ് ് ് ് ് ് ് ് നടപടിക്രമങ്ങൾ ലഘൂകരിച്ചും ബോധവൽക്ക്രണം നടത്തിയും നാലു ലക്ഷത്തിലധികം തൊഴിലാളികളെ ഇ എസ് ഐ സേവന പരിധിയിൽ ഉൾപ്പെടുത്താൻ ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി പി രാമകൃഷ്ണൻ പറ ഞ്ഞു കട്ടപ്പനയിൽ പുതുതായി ആരംഭിച്ച് ഇ

ഐ ഡിസ്പെൻസറി വെള്ളയാംകുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റ് മികച്ച സേവനങ്ങളാണ് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട് ഓതറ റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രമഫലമായി ലോകത്തെ ഏറ്റവും വികസനം നേടിയ ഭൂപ്രദേശ മായി കേരളം മാറി എന്നാൽ ദേശീയപാത നിർമ്മാണത്തിൽ കേന്ദ്രഗവൺമെന്റിന്റെ അനാസ്ഥ തുടരുകയാണെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തി

വിതരണ ഉദ്ഘാടനം എറണാകുളം എസ് ആർ വി സ്കൂളിൽ കെ

എസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ കാർത്തിക് നിർവ്വഹിച്ചു

എസിന്റെ നേരിട്ടുള്ള നിയ ന്ത്രണത്തിലാണ് എത്തിക്കുക

കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു

ആലപ്പുഴ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളു ടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

സമ്മേളനം മറ്റന്നാൾ തൃശൂരിൽ നടക്കും

ജനറൽ സെക്രട്ടറി ആർ ശശിധ രൻപിള്ള അറിയിച്ചു

നവ മാധ്യമങ്ങളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് ഇന്ന് തൃശൂർ വിമല്ല കോളേജിൽ നടക്കും നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ജില്ലാ മേധാവി സുരേഷ് മേനോൻ ക്ലാസ്സിന് നേതൃത്വം നൽകും കോളേജിലെ വനിതാ സെല്ലിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

അപേക്ഷിച്ചവർക്ക് ആദ്യ ഗഡു അടയ്ക്കാൻ സമയപരിധി ഇന്നവസാനിക്കും

് ് ് ് ് ് കേരള സ്റ്റാർട്ട് അപ്പ് മിഷനും ഗൂഗിളും സംയുക്തമായി സംഘടിപ്പി ക്കുന്ന ടെക്സ്റ്റാർസ് സ്റ്റാർട്ടപ്പ് വീക്കെൻഡിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം

ഡെവലപ്പർമാർക്കും ബിസിനസ് മാനേജർമാർക്കും സംരഭകർക്കും പുതിയ ആശയങ്ങൾ അവതരിപ്പി ക്കാം

ഗവൺമെന്റ് ഉത്തരവായി കുമാർ സാഹ്നി സിനിമാവിഭാഗം ജൂറി ചെയർമാനും ഡോക്ടർ പി

പോക്കർ രചനാവിഭാഗം ജൂറി ചെയർമാനുമാണ്